മയക്കുമരുന്ന് കള്ള്ക്കടത്ത് ഭീഷണി ചെറുത്ത് തോൽപ്പിക്കുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ ബിംസ്റ്റെക് രാഷ്ട്രങ്ങളോട് ഇന്ത്യ

കാശ്മീരിൽ സമാധാന അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഉദ്യമങ്ങൾക്ക് പിന്തുണ അറിയിച്ച് അമേരിക്കൻ പാർലമെന്റ് അംഗം

പ്രതിരോധം നിക്ഷേപം ഗതാഗതം തുറമുഖം സംസ്കാരം വൃവസായം ബൌദ്ധിക സ്വത്ത് അവകാശം യോഗ എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ് കരാറിൽ ഏർപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റിബെലോ ഡി സൂസയും ഇന്നലെ ന്യൂഡൽഹി യിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഒപ്പിട്ടത്

മോദിയും ഡി സൂസയും വൻതോതിൽ ഇന്ത്യ പോർച്ചുഗൽ പങ്കാളിത്തം ലക്ഷ്യമിട്ട് ക്രിയാത്മകമായ ചർച്ചകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

ഐക്ട്ര്മാഷ്ട്ര സഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ സ്ഥിര അംഗത്വത്തിന്റ് പോർച്ചുഗീസ് പ്രസിഡന്റ് പിന്തുണ വാഗ്ദാനം ചെയ്തു

ജിതേന്ദ്ര സിംഗിനെ സന്ദർശിച്ച് കേന്ദ്ര ഭരണ പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു

അതേസമയം ഏറ്റുമുട്ടൽ സ്ഥലത്തോ വധിച്ച തീവ്രവാദികളെ സംസ്കരിക്കുന്നതിനിടയിലോ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല സാങ്കേതികവും മാനുഷികവുമായ നിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിമാക്കിയതായും ശ്രീ

ഇതിന്റെ ഫലമായി തീവ്രവാദ സംഘത്തിൽ ചേരാൻ തയ്യാറായ ഏഴ് യുവാക്കളെ തടയാൻ സാധിച്ചതായും അവർ കുടുംബങ്ങളിലേക്ക് ഉടൻ മടങ്ങി വരുമെന്നും ഡിജിപി കൂട്ടിച്ചേർത്തു

ഹരിത വിപ്ലവത്തിന് ശേഷമുള്ള ഘട്ടത്തിൽ സ്ഥാപനത്തിന്റെ ദൃദ്യനേട്ടങ്ങൾ പ്രശംസാർഹ മാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ഇത്തരം അംഗീകാരങ്ങൾ കർഷകരു്ടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ

നിയമനിർമ്മാണത്തിൽ പരിശീലനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇത്തരം പരിപാടികൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ശ്രീ

കോടതിയലക്ഷ്യത്തിനുള്ള നടപടി സ്വീകരിക്കാ തിരിക്കണമെങ്കിൽ മുൻ ഉത്തരവ് വേഗം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

അബ്ദുൽ നൽകണമെന്നും ജസ്റ്റിസുമാരായ അരുൺ മിശ്ര എസ് അബ്ദുൽ നസീർ എം

ഷാ എന്നിവരട്ടങ്ങിയ് ബഞ്ച് വിധിച്ചു

ഒരു ദിവസത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഉത്തർ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ കല കരകൌശല മേള ദീൻ ദയാൽ ഹസ്തകലാ ശങ്കുളിൽ ശ്രീ

സംസ്ഥാന ത്തിന്റെ കലയ്ക്കും കരകൌശല ഉല്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതിനായാണ് രണ്ട് ദിവസത്തെ മേള ലക്ഷ്യമിടുന്നത്

ഇത് സംബന്ധിച്ച നടപടികൾ ദേശീയതലത്തിൽ ഏകോപിപ്പിച്ച് നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ അറിയിച്ചു വോയിസ് നിലവിൽ രാജ്യത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ

ചൈനയിൽ നിന്നോ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നവർ മുൻകരുതൽ പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു

വൈറസ് നിയന്ത്രണവും പ്രതിരോധ പ്രവർത്തന ങ്ങളും അതീവ ജാഗ്രതയോടെ മുന്നേറുകയാണെന്നും ശ്രൂീമതി സുധൻ അറിയിച്ചു നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ൃത്ത്രിാഖണ്ഡ് ഉത്തർപ്രദേശ് ബിഹാർ പശ്ചിമ ബംഗാൾ സിക്കിം എന്നീട്ട് സംസ്ഥാനങ്ങളും കൊറോണ വൈറസ് ബാധ നിരീക്ഷണം ദൃശക്തിപ്പെടുത്തണമെന്ന് ആരോഗൃ സെക്രട്ടറി ആവശ്യപ്പെട്ടു

കൊറോണയുടെ പ്രഭവ ക്കേന്ദ്രമായ വുഹാനിലാണ് ഏറ്റവും അധികം പേർ മരിച്ചത്

ഐ വിയിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്

നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടേയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ദോഷ ഫലങ്ങൾ നേരിട്ട രാജ്യങ്ങൾ അവരുടെ അനുഭവങ്ങളും വിവരങ്ങളും പങ്ക് വയ്ക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഈ ഭീഷണി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആഭ്യന്തര സഹമന്ത്രി ജി

സാമ്പത്തിക മേഖലയെ അസ്ഥിരമാക്കു്ന്ന് മയക്കുമരുന്ന് കടത്തൽ ഭീഷണി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദ പ്രവർത്തനങ്ങളും കടൽ മാർഗ്ഗത്തിലുള്ള മയക്കുമരുന്ന് കടത്തലും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി

ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്രഗവൺമെന്റ് റദ്ദാക്കിക്കഴിഞ്ഞ് ആറ് മാസത്തിനകം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതായും സംഘം വിലയിരുത്തി സാമ്പത്തിക പ്രതിരോധ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അമേരിക്കയുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും പീറ്റർ കിംഗ് പറഞ്ഞു

പാർപ്പിട പ്രശ്നത്തിന് ഫലവത്തായ പരിഹാരമാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയെന്നും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു ഒരു നഗരത്തിലെ വീടിന്റെ നിർമ്മാണ ചെലവ് നിശ്ചയിക്കു മ്പോൾ അത് ജനങ്ങൾക്ക് താങ്ങാനാവൂന്നിൽട്ട്ണോ എന്ന് പരിശോധിക്ക ണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ശ്വൺമെന്റ് കാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വൃദ്ധസ്കൾക്ക് വിധേയമായി അതിന്റെ ഉടമസ്ഥാവകാശം നൽകുന്ന ക്ടാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നതായും ശ്രീ

ഐ

സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള കാട്ടയ്ക്കും ഇ

ഐ

ഇന്നലെ ജർമ്മനിയിലെ മ്യൂണിച്ചിൽ സുരക്ഷാ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര സുരക്ഷാ നയത്തിന്റെ ആഗോള ചർച്ചാ വേദിയായ മ്യൂണിച്ചിൽ മൂന്ന് ദിവസത്തെ സുരക്ഷാ സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത് ആഗോള പ്രശ്ന പരിഹാരത്തിന് ഇന്ത്യൻ ആശയങ്ങളുടെ രൂപരേഖ നൽകുകയും യോഗത്തിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളമായി കൂടിക്കാഴ്ച നടത്തുകയുമാണ് ലക്ഷ്യം